രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ

ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ടു തീവ്രവാദികൾ കൊല്ലപ്പെട്ടു

പര്സ്ട്രപ്രചാരണം ഇന്നലെ അവസാനിച്ചു വോട്ടെടുപ്പിനുള്ള അവസ്ക്കുന്റ്ലട്ട ഒരുക്കങ്ങളും പൂർത്തിയായി

സംഘർഷം മുന്നിൽക്കണ്ട് ബംഗാളിലെ ബൂത്തുകളിൽ സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്

സുന്ദർബൻ മേഖലയിൽ ബോട്ടുകളിൽ സുരക്ഷാ ജീവനക്കാർ ബൂത്തുകളിൽ എത്തും

അതിർത്തി ജില്ലകളും അതിർത്തി സംസ്ഥാനങ്ങളും കനത്ത പോലീസ് നിരീക്ഷണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ മനോജ് സിൻഹ രവിശങ്കർ പ്രസാദ് ഹർസിമ്രത് കൌർ ബാദൽ ഹർദീപ് സിങ്പുരി സണ്ണിദിയോൾസുക്ബീർ സിംഗ് ബാദൽ തുടങ്ങിയവരും അവസാന ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്

കാസർകോട് മണ്ഡലത്തിലെ കുളിയോട് ജി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

ഇതോടൊപ്പം പശ്ചിമബംഗാളിലെ ബംഗുരയിലും റീപോളിംഗ് നടക്കും

ജെ പി സ്ഥാനാർത്ഥി സണ്ണി ഡിയോളിന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി

സന്ദർശനത്തിനിടയിൽ ഇന്ന് കേദാർനാഥ് ക്ഷേത്രത്തിലും നാളെ ബദരീനാഥിലും അദ്ദേഹം ദർശനം നടത്തും കേദാർപുരിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അദ്ദേഹം വിലയിരുത്തും

തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സൌകര്യങ്ങളും അദ്ദേഹം വിശകലനം ചെയ്തു റെയിൽ റോഡ് വീതികൂട്ടുന്ന പദ്ധതികളുടെ പുരോഗതിയെപ്പറ്റി മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ശ്രീ വർമ്മ ചർച്ച നടത്തി

വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നത് ഉൾപ്പെടെ ഇത്തവണ വോട്ടെണ്ണലിന് പുതുമകൾ ഏറെയാണ്

ഓരോ നിയോജകമണ്ഡലങ്ങളിലും അഞ്ച് വീതം പോളിംഗ് ബൂത്തുകളിലെ വിവി പാറ്റ് മെഷീനിലെ സ്തിപ്പുകൾ എണ്ണും വോട്ടെണ്ണൽ ദിവസം നറുക്കെടുപ്പിലൂടെ ഈ ബൂത്തുകൾ കണ്ടെത്തും

ആകാശവാണിയുടെ എഫ്

മേഖലയിൽ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് തെരച്ചിൽ നടത്തുകയായിരുന്ന സേനയ്ക്കു നേരെ തീവ്രവാദികൾ ആക്രമണം പ്രത്യാക്രമണത്തിലാണ് നടത്തുകയായിരുന്നു

രാഷ്ട്രീയ റൈഫിൾസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ജമ്മുകാശ്മീർ പോലീസ് സി

അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ മേഖലയിലെ ഇന്റർനെറ്റ് ബന്ധവും വിഛേദിച്ചിട്ടുണ്ട് അതിനിടെ ദക്ഷിണ കാശ്മീരിലെ അനന്ത് നാഗ് ജില്ലയിലും സേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി

ശ്രീനഗർ ബൂരാമുള്ള റൂട്ടിലാണ് രാവിലെ മുതൽ ട്രെയിൻ സർവ്വീസ് തുടങ്ങിയ്ത് വിഘടനവാദികൾ ആഹ്വാനം ചെയ്ത സമരത്തെ തുടർന്നാണ് ട്ടെയിൻ ഗതാഗതം നിറുത്തിവെച്ചത് തെക്കൻ കാശ്മീരിലെ സർവ്വീസുകൾ ഇന്നും റദ്ദാക്കിയിട്ടുണ്ട്

വെങ്കയ്യനായിഡുവും ബുദ്ധപൂർണ്ണിമ ദിനാശംസകൾ നേർന്നു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

ഇതുസംബന്ധിച്ച് തമിഴ്നാടിന് ഇന്നല്ലീയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയും മുന്നറിയിപ്പ് ഗ്രി്ട്കിയ്തായി കേന്ദ്ര ജല കമ്മിഷൻ അംഗമായ എസ്

ആഗ്ര ലക്നോ എക്സ്പ്രസ് ഹൈവേയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത്

ഇരുരാജ്യങ്ങളുമായി ഉത്തര കൊറിയയ്ക്കുള്ള ബന്ധം സുഖകരമല്ലാത്ത സാഹചര്യത്തിലാണ് അമേരിക്കയുടെ മിസൈൽ വ്യാപാരം

മത്സ്യബന്ധ്യന്ത്തിനുപോയ തൊഴിലാളികൾക്ക് നേരെ ബോക്കാഹറം തീവ്രവാദിക്കൾ വെടി ഉതിർക്കുകയായിരുന്നു

രോഗം സ്ഥിരീകരിച്ച പേരാമ്പ്ര പന്തിരിക്കരയിലെ സാലിഹ് മരിച്ചത് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ്